പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭാ അ്നുമതി

ഇനത്തിൽ ഇന്ന് ന്യൂസിലന്റ് ശ്രീലങ്ക ആസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ മൽസരങ്ങൾ

പുതുതായി അധികാരമേറ്റ എൻ

എ ഗവൺമെന്റിന്റെ ആദ്യമന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം വിശദാംശങ്ങളുമായി ഗോപകുമാർ

നേരത്തെ രണ്ട് ഏക്കർ ഭൂമിയുള്ള കർഷകർ മാത്രമായിരൂന്നു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ

ഇതുവരെ മൂന്ന് കോടിലേറെ കർഷകർക്ക് ഈ പദ്ധതിയുടെ ഗുണഫലം ലഭിച്ചിട്ടുള്ളതായും അദ്ദേഹം അറിയിച്ചു

എം

പ്രധാൻമന്ത്രി കിസാൻ പെൻഷൻ യോജന എന്ന പുതിയ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി രാജ്യമെമ്പാടുമുള്ള ചെറുകിട ഇടത്തര കർഷകർക്കായുള്ളതാണ് പദ്ധതി

ചെറുകിട വ്യാപാരികൾക്ക് പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി

ഇതിനായി രാജ്യമെമ്പാടും പ്രത്യേക കേന്ദ്രങ്ങളുണ്ടാകും ഏകദേശം മൂന്ന് കോടിയിലേറെ വ്യാപാരികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ മൃഗങ്ങളിലെ കുളമ്പുരോഗബാധ നിയന്ത്രണത്തിനായുള്ള പ്രത്യേക പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി

ഒരു കോടിയിലധികം പിന്നികൾക്കും കുത്തിവെയ്പ്പ് നൽകും

പുതിയ ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്ര വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഈ വിവരം

ഇതിനുമുന്നോടിയായി ജൂലൈ നാലിന് സാമ്പത്തിക സർവ്വെ റിപ്പോർട്ടും സമർപ്പിക്കും

ആഭ്യന്തര വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്

മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് ഇന്നലെ മന്ത്രിസഭായോഗം ചേർന്നത്

അടുത്ത ഏതാനും ദിപ്പ്സ്ങ്ങളിൽ കൂടി താപനില ഇതേ നില തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു അന്തരീക്ഷ താപനില കൂടിയതിന്റെതുടർന്ന് ദേശീയ തലസ്ഥാനത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുളളതിനാൽ ന്യാളെ മുതൽ താപനിലയിൽ നേരിയ കുറവുണ്ടാകാൻ സാധൃത്യുണ്ടെന്നും കാലാവസ്ഥാകേന്ദ്രം അറിയിച്ചു

കർഷകരും ഔപചാരിക ബാങ്കിംഗ് വൃവസ്ഥയുടെ ഭാഗമാകുന്നതിലൂടെ കർഷകർക്കുളള നേട്ടങ്ങളും എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ചിത്രങ്ങളും ലഘുലേഖകളും ഉപയോഗിച്ച് കർഷകർക്കിടയിൽ സാമ്പത്തിക സാക്ഷരതാ സന്ദേശം പ്രചരിപ്പിക്കുമെന്ന് ആർ ബി ഐ പ്രസ്താവനയിൽ അറിയിച്ചു ബാങ്കുകൾ തങ്ങളുടെ ഗ്രാമീണ ശാഖകളിലും എ ടി എം കളിലും വെബ്സൈറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന് റിസർവ്വ് ബാങ്ക് നിർദ്ദേശം നൽകി ഇതിനായി ഈ മാസം ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും പ്രചാരണ പരിപാടിയും ആർ ബി ഐ സംഘടിപ്പിക്കും

പോലീസ് കസ്റ്റഡിയിലായിരുന്ന മൂവരേയും ഇന്നലെ അഡീഷണൽ സെഷൻസ് ജഡ്ജ് ആർ

സംഭവം കൊലപാതകമാണ്ണ്ന് സ്ഥിരീകരിക്കുന്ന യാതൊരു തെളിവും ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് മുംബൈ ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു പ്രതികളുടെ പോലീസ് കസ്റ്റഡി നീട്ടണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി നിരാകരിച്ചു

ഒരാഴ്ചയ്ക്കകം സമിതി അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റിന് സംഭവം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കൈമാറുമെന്ന് ഐ എം എ അറിയിച്ചു

പരിക്കേറ്റവരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു

അസ്താന ഡി എസ് പി ദേവേന്ദർ കുമാർ ഇടനിലക്കാരൻ മനോജ് പ്രസാദ് എന്നിവർക്കെതിരായ കേസിലെ അന്വേഷണം പൂർത്തീകരിക്കാൻ സാവകാശം ആവശ്യപ്പെട്ട് സിബിഐ കോടതിയെ സമീപിക്കുകയായിരുന്നു

ഈ കാലാവധി തീർന്നതിനെ തുടർന്നാണ് സമയം നീട്ടി നൽകണമെന്ന ആവശ്യമായി സിബിഐ ഹൈക്കോടതിയെ സമീപിച്ചത്

ബുധനാഴ്ച സൌത്ത് ആംടണിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന മൽസരത്തോടെ ഇന്ത്യയുടെ ലോകകപ്പ് മൽസരങ്ങൾക്ക് തുടക്കമാകും

ഒൻപതാം സീഡ് ഉക്രെയിനിയൻ താരം എലീന സ്വീറ്റോലിന പത്തൊൻപതാം സീഡ് ഗാർബൈയിൻ മുഗുരുസയോട് പരാജയപ്പെട്ടു

പുരുഷൻമാരുടെ ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ റൊമാനിയൻ താർം മാരിയസ് കോപ്പിൽ സഖ്യം മൂന്നാം റൌണ്ടിൽ പ്രവേശിച്ചു

ഇന്തോ ഫ്രഞ്ച് സഖ്യം ലിയാണ്ടർ പെയസ് ബെനോയറ്റ് പെയർ രണ്ടാം റൌണ്ടിലേക്ക് കടന്നു നേരത്തേ ദിവിജ് ശരൺ ബ്രസീലിയൻ താരം മാഴ്സലോ ഡെമോലിനർ സഖ്യം ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു